സുരേഷും സന്ദീപ് നായരും ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിൽ

ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചു

രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും രോഗവ്യാപനവും വിലയിരുത്തിയ പ്രധാനമന്ത്രി വൃക്തിശുചിത്വത്തിനും സാമൂഹൃ അച്ചടക്കത്തിനും പ്രാധാനൃം നൽകണമെന്ന് നിർദ്ദേശിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ ഡോ ഹർഷ് വർദ്ധൻ ക്യാബിനറ്റ് ഒസ്ക്ട്ട്റി ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗൃത്തിൽ സംബന്ധിച്ചു

ഇരുവരെയും ഇന്ന് കൊച്ചിയിലെ എൻ

കഴിഞ്ഞ വെള്ളിയാഴ്ച കേസുമായി ബന്ധപ്പെട്ട് സരിത് കുമാർ സ്പ്ന സുരേഷ് സന്ദീപ് നായർ എന്നിവരെ ഉൾപ്പെടുത്തി അന്വേഷണ ഏജൻസി എഫ് ഐ

രജിസ്റ്റർ ചെയ്തിരുന്നു നിയമ വിരുദ്ധ പ്രവർത്തന നിരോധന നിയമമായ യു എ

എ യുടെ വിവിധ വകുപ്പ് ചേർത്തായിരുന്നു കേസ് ഫയൽ ചെയ്തത് കള്ളക്കടത്ത് സ്വർണ്ണം പിടിച്ചെടുത്തിനെ തുടർന്ന് ഒളിവിൽ പോയ സ്വപ്ന സുരേഷ് സംസ്ഥാന സർക്കാരിന്റെ ഐ ടി വകുപ്പിന് കീഴിലെ കെ

എന്ന സ്ഥാപനത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു

രോഗം റിപ്പോർട്ട് ചെയ്ത ശേഷമുള്ള ഏറ്റവും കൂടിയ പ്രതിദിന കണക്കാണിത്

എന്നാൽ രോഗം ഭേദമാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുകയാണ്

സമ്പർക്കം മൂലം കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ ബ്രെയ്ക്ക് ദി ചെയ്ൻ കൃാമ്പയിൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സാമൂഹിക അകലം കർശനമായി പാലിക്കാനും കൈകൾ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

രോഗം ഗുരുതരമാകുന്നത് തടയുന്നതിനും തുടർവ്യാപനം ഉണ്ടാകുന്നത് നിയന്ത്രിക്കുന്നതിനും ഇത് സഹായിക്കും അണുബാധ വേഗത്തിൽ പടരുമ്പോൾ കുറച്ചു സമയത്തിനുളളിൽ പരിശോധനാഫലം ലഭിക്കുന്ന പരിശോധനകൾ ആവശ്യമാണ് അതിനാലാണ് ആൻറിജൻ ടെസ്റ്റ് അണുവ്യാപനം കൂടുതലുളള സ്ഥലങ്ങളിൽ നടത്തുന്നതെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു ആൻറിജൻ പ്രടെസ്റ്റിൽ പോസിറ്റിവായി കണ്ടാൽ ഒരാൾ കോവിഡ് ബായിതനാണെന്ന് ഉറപ്പിക്കാമെന്ന് ഐ സി

ആന്റിജൻ ടെസ്റ്റിനെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത്കൾ ് വിശ്വസിക്കരുതെന്നും ആധികാരിക വാർത്തകൾ മാത്രം പ്പിശ്ചസിക്കണമെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ അവസരങ്ങളിലെ തുലൃത എന്നിവ ഉറപ്പുവരുന്നതാണ് മാർഗ്ഗരേഖ

ജി

സി മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരുന്നു

ഏതെങ്കിലും സാഹചര്യത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകുമെന്ന് കേന്ദ്ര മാവന വിഭവശേഷി മന്ത്രി രമേശ് പൊഖ്റിയാൽ അറിയിച്ചു

യൂറോപ്പ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്നലെ എത്തിയവരിൽ ഏറിയപങ്കും കേന്ദ്ര വ്യാമയാനമന്ത്രി ഹർദീപ് സിംഗ് പുരി ട്വിറ്ററിലാണ് ഈ വിവരങ്ങൾ നൽകിയത് വന്ദേ ഭാരത് ദൌത്യം പ്രവ്യാസികളിൽ പ്രതീക്ഷയും സന്തോഷവും പ്രദാനം ചെയ്തതായി ്ക്യേന്ദ്മന്ത്രി പറഞ്ഞു

ലണ്ടൻ ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും

കെട്ടിട നിർമ്മാണ പദ്ധതികളിൽ സൌരോർജ്ജം പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

പളനിസ്വാമി ആവശ്യപ്പെട്ടു

ട്രാവൽ ടൂർ കമ്പനികളുടെ പ്രസ്യറക്ടർമാരുടെയും അവരുടെ ചാർട്ടേഡ് അക്കൌണ്ട് ന്റുമാരുടെയും വസതികളിലും ഓഫീസുകളിലുമാണ് കൃതിരിച്ചിൽ നടത്തിയത്

വിദേശ നാണ്യ വിനിമയത്തിലെ അനധികൃത ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് നടപടി